രാജ്യത്തിന്റെഅതിർത്തികളുടെചരിത്രംരേഖപ്പെടുത്തുന്ന തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിംഗിന്റെ അനുമതി

മധ്യ കിഴക്കൻ മേഖലയിലെജലഗതാഗതസുരക്ഷയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സഖ്യത്തിൽസൌദിഅറേബ്യഅംഗമായി

ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലെമുതിർന്ന ഉദ്യോഗസ്ഥർ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആന്റ് ലബോറട്ടറി മേധാവികൾ ആർക്കൈവ്സ് ഡയറക്ടർ ജനറൽ ആഭ്യന്തര വിദേശകാര്യ രാജ്യരക്ഷാ മന്ത്രാലയ വക്താക്കൾ എന്നിവരുമായി ഇതു സംബന്ധിച്ച് ശ്രീ

അതിർത്തി രൂപാന്തരം മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം പ്രദേശത്തെ ജനതയുടെ ഗോത്രം സംസ്കാരം സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നീ വിഷയങ്ങൾ ചരിത്ര രചനയിൽ ഉൾപ്പെടുത്തും ചരിത്ര രചന ഉദ്യമം രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ശ്രീ രാജ്നാഥ്സിംഗ് പ്രത്യാശ പ്രകടിപ്പിച്ചു

ദൈനം ദിന കോടതി നടപടികൾ പുരോഗുമീക്കുകയാണ് വാദം കേൾക്കൽ അവസാന ഘട്ടത്തിലാണെന്നുംജ്സ്റ്റിസ് രഞ്ജൻ ഗോഗൊയ് അധ്യക്ഷനായ അഞ്ചംഗ്രൂഭർണ്ഘടനാ ബഞ്ച് വൃക്തമാക്കി മധ്യസ്ഥ ചർച്ചകളിലൂടെ തർക്കം പൃതിഹരിക്കാൻ ഇരുകക്ഷികളും തയാറാണെങ്കിൽ അങ്ങനെയാകാമെന്നും ബഞ്ച് നിർദ്ദേശിച്ചു വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിഎഫ്

കലിഫുള്ള അധ്യക്ഷനായുള്ള മൂന്നംഗസമിതിയുടെ മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾ അതീവ രഹസ്യമായിരിക്കുമെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി

പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും ഒരു ദിവസം ഇന്ത്യയ്ക്ക് അവിടെ പ്രത്യേകം അധികാരം കൈവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഞായറാഴ്ചയാണ് ഈസ്റ്റ് ഗോദാവരി ജില്ലയിലെ ദേവിപട്ടണത്ത് ബോട്ട് മറിഞ്ഞത്

ദുരന്തത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡി ഉത്തരവിട്ടു

വോയ്സ് പൊതുസുരക്ഷാ നിയമും അനുസരിച്ചാണ് ഡോ

ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപതൃ വൃവസ്ഥയെയും അതിന്റെ അന്തസത്തയേയും അടിച്ചമർത്തുന്ന തരത്തിലുളള നടപടിയാണ് ഡോ

ജമ്മുകശ്മീരിനുള്ള പ്രത്യേക പദവി പിൻവലിച്ചശേഷമുള്ള സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ഗവൺമെന്റിന്റെ നിരാശയാണ് അറസ്റ്റ് സൂചിപ്പിക്കുന്നതെന്നും മുതിർന്ന ദേശീയ കോൺഫറസൻസ് നേതാക്കൾ ജമ്മുവിൽ പ്രസ്താവനയിൽ പറഞ്ഞു

ജി

ഭീകരവാദികൾ ഉയർത്തുന്ന ഇത്തരം വെല്ലുവിളികൾ നേരിടാൻ സേനാ വിഭാഗങ്ങൾ സുസജ്ജമാണെന്നും ശ്രീ

പോലീസിന്റേയും സുരക്ഷാസേനയുടേയും കഠിന പ്രയ്തനവും ത്യാഗ മനോഭാവവും താഴ്വരയിലെ ഭീകര പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാൻ സഹായകമായിട്ടുണ്ടെന്നും അദ്ദേഹംഅഭിപ്രായപ്പെട്ടു കിഷ്ത്വാർ ജില്ലയിലെ സുരക്ഷാസ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തിയ ഡി ജി

ജമ്മു കശ്മീരിൽ സമാധാനം നിലനിർത്താൻ സദാജാഗരൂകരാകണമെന്ന് സൈനികരോട് ആഹ്വാനം ചെയ്തു

ചീഫ് സെക്രട്ടറി ബിവിആർ സുബ്രഹ്മണൃം വിളിച്ചുചേർത്ത യോഗത്തിൽ അറിയിച്ചാണ് ഈ വിവരം ്യ കശ്മീർ ജമ്മു ലഡാഖ് മേഖലകളിലെ ഡെപ്യൂട്ടി കമ്മീഷ്ണർമാർ യോഗത്തിൽ സംബന്ധിച്ചു യോഗത്തിൽ ബ്ലോക്ട് വിക്സന സമിതിതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പ്രഗ്ഗാമത്തിലേക്ക്മടങ്ങാം പദ്ധതി നടപ്പിലാക്കൽ അവശ്രൃ വൃസ്തുക്കളുടെ ലഭൃത പ്രധാന വികസന പദ്ധതികളുടെ ഷ്ട്ര്യോഗതി തുടങ്ങിയവ ചീഫ് സെക്രട്ടറി വിശകലനം ചെയ്തു

എസ്

രാജ്യത്തിന്റെ എണ്ണക്കമ്പനികളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണിതെന്ന് സൌദി അറേബ്യ അറിയിച്ചു

റഡാറുകളും ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളും ഉപയോഗിച്ചാണ് മിസൈലിന്റെ ഗതി വിശകലനം ചെയ്തത്

മിസൈൽ വികസിപ്പിച്ചെടുത്ത ഡി ആർ ഡി ഒ

അഴിമതിയിൽഉൾപ്പെടുന്നവരെസംബന്ധിച്ച വിവരം നൽകാൻ രാജ്യത്തെ രഹസ്യാനേഷണ ഏജൻസിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായി അവാമിലീഗ് ജനറൽസെക്രട്ടറിയും മന്ത്രിയുമായഒബേദുൾഖാദർ ധാക്കയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രഹസ്യാന്വേഷണറിപ്പോർട്ട് അനുസരിച്ച്ഗവൺമെന്റ്അഴിമതിഉന്മൂലനം ചെയ്യാനായി പ്രത്യേക ഇടപെടലുകൾ നടത്തും തന്റെ പാർട്ടിക്കകത്തുംഅഴിമതി വിരുദ്ധ യജ്ഞം നടത്തുമെന്ന് ശ്രീ

അഴിമതിയോട്യാതൊരുവിട്ടുവീഴ്ചയുംഇല്ലാത്ത നിലപാടാണ്ഗവൺമെന്റിനുള്ളതെന്നുള്ള്ട്ടേഹംകൂട്ടിച്ചേർത്തു

നിരവൃധി പേർക്ക് പരിക്കേറ്റു അഫ്ഗാൻ പ്രസിഡന്റ്അഷ്റഫ്ഖാന്റി ഇന്നലെ നയിച്ച പ്രചരണജാഥയ്ക്കിടെയാണ്ചാവോർ സ്ഫോടകവസ്തുഘടിപ്പിച്ച മോട്ടോർഇടിച്ചുകയറ്റിആദൃസ്ഫോടനം നടത്തിയത്

പ്രസിഡന്റ്സുരക്ഷിതനാണെന്നാന്ന്റിപ്പോർട്ടുകൾ കാബൂളിന് സമീപം അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം അമേരിക്കൻ എംബസി നേറ്റോആസ്ഥാനം എന്നിവസ്ഥിതിചെയ്യുന്ന ഹരിത പ്രവിശ്യയിലാണ്മണിക്കൂറുകൾക്ക രണ്ടാമത്തെ സ്ഫോടനം നടന്നത് സ്ഫോടനങ്ങളുടെഉത്തരവാദിത്തം താലിബാൻ ഏറ്റെടുത്തു

നിയുക്തഗുണഭോക്തൃരാജ്യങ്ങളിൽ നിന്നുള്ളആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾക്ക് നികുതിഒഴിവാക്കി സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവുംവലിയയു എസ് വ്യാപാര പദ്ധതിയാണ് ജി

ഫ്ളാറ്റിലെ താമസക്കാർ ഇന്ന് ഹൈക്കോടതിയെസമീപിക്കുന്നു് അനുകൂലതീരുമാനങ്ങളെടുന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ വീണ്ടും മരട് നഗരസഭയ്ക്ക് മുന്നീൽ സത്യഗ്രഹ സമരം ആരംഭിക്കാനാണ് തീരുമാനം അതേസമയം ഫ്ളാറ്റ് പൊളിക്കുമ്പോഴുള്ള പരിസ്ഥിതി ആഘാതം പഠിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപരൃ ഹർജിസുപ്രീം കോടതി തൽക്കാലം പരിഗണിക്കില്ല

പ്താസ്റ്റിക്കുകൾ കത്തിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

സ്കൂൾ പരിസരത്ത് പുതുതായി നിർമ്മിച്ച ലബോറട്ടറി ബ്ളോക്കും ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു

ഇതിലൂടെ സിൽമൂ നിയോജക മണ്ഡലത്തിലെ ആദ്യ ഗ്ലാമ്മായ ലാലുങ്ചുട്ടക്ക് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാകും